ഈ മണ്ഡലങ്ങ ളിൽ കൊടുമ്പിരികൊണ്ട പ്രചാരണമാണ് നടക്കുന്നത്

അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രവചിച്ച് സർവ്വേ പ്രസിദ്ധീ കരിച്ചു മുന്ന് മാധ്യമങ്ങളോട് വിശദീകരണം തേടി

ഇതിനായി ഉദ്യോ ഗസ്ഥരെയും മൈക്രോ ഒബ്സർവർമാരെയും കൌണ്ടിംഗ് സൂപ്പർവൈസർമാരെയും നിയോഗിച്ചു

വോട്ടെണ്ണൽ ഉദ്യോഗ സ്ഥർക്ക് നാളെയും മറ്റന്നാളും പരിശീലനം നൽകും

ടി ഇസ്ലാമിക് സെന്റർ ക്യാമ്പസിലാണ് നടക്കുക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

ലലലലല മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ മൂന്ന് കേന്ദ്രങ്ങളിലായാണ് നടക്കുന്നത് മലപ്പുറം മണ്ഡലത്തിലെ വോട്ടെണ്ണൽ മലപ്പുറം ഗവ കോളേജിലും പൊന്നാനിയിലേത് മലപ്പുറം സെന്റ് ജെമ്മാസ് സ്കൂളിലും മലപ്പുറം എംഎസ്പി ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് വയനാട് മണ്ഡലം ഉൾപ്പെടുന്ന ഏറനാട് നിലമ്പൂർ വണ്ടൂർ നിയോജകമണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നിലമ്പൂർ ഗവ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കും യുക്തിഭദ്രമായി കാര്യങ്ങൾ വിലയിരുത്താൻ എൽഡിഎഫിനും യുഡിഎഫിനും കഴിയുന്നില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡണ്ട് പി

കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് ഇരുമുന്നണികൾക്കും ഇൌ ലഭിക്കില്ലെന്നും തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെയും എൻഡിഎയുടെയും വോട്ടുകൾ ഇരട്ടിയായി വർദ്ധിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

വസ്തുതകൾ മറച്ചുവെച്ച് മുൻഗണനാ പട്ടികയിൽ കട ന്നുകൂടിയ അനർഹർക്കെതിരെ നിയമനടപടി സ്വീകരി ക്കുന്നതിനും അനർഹമായി ഉൾപ്പെട്ട കാലയളവിലെ റേഷൻ വിഹിതത്തിന്റെ കമ്പോളവില ഈടാക്കുന്നതിനും എല്ലാ ജില്ലാ സപ്ലൈ ഓഫീസർമാർക്കും താലൂക്ക് സപ്പൈ ഓഫീസർമാർക്കും അദ്ദേഹം നിർദ്ദേശം നൽകി മുൻഗണനാപട്ടിക കുറ്റമറ്റതാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി

തുടർന്നും അനർഹരെ സംബന്ധിച്ച് പരാതികൾ ലഭിക്കുന്ന സാഹചരൃത്തിലാണ് മുൻഗണനാപട്ടികയുടെ പരിഷ്ക്കരണം സംബന്ധിച്ച് ഊർജ്ജിത നടപടി സ്വീക രിക്കുന്നതെന്നും സിവിൽ സപ്ലൈസ് കമ്മീഷണർ അറിയിച്ചു

ലലലലലല റേഷൻ സംവിധാനത്തെക്കുറിച്ച് പൊതുജനങ്ങളുടെ പരാതികൾ ഉടനടി പരിഹരിക്കാൻ പൊതുവിതരണ കമ്മീ ഷറേറ്റിൽ കോൾ സെന്റർ ആരംഭിച്ചു

പൊതുജനങ്ങൾ ഈ സൌകരൃം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് സിവിൽ സപ്ലൈസ് ഡയറക്ടർ അറിയിച്ചു ബാങ്കിന്റെ ജപ്തി ഭീഷണിയുണ്ടെന്നാരോപിച്ച് നെയ്യാ റ്റിൻകരയ്ക്കടുത്ത് മാരായമുട്ടത്ത് മണ്ണെണ്ണയൊഴിച്ച് തീകൊളുത്തി ചികിത്സയിലായിരുന്ന അമ്മയും മരിച്ചു മഞ്ചവിളാകം മലൈക്കട വൈഷ്ണവി നിവാസിൽ ലേഖ യാണ് വൈകീട്ട് ഏഴോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ മരിച്ചത് ലേഖയും മകൾ വൈഷ്ണവിയും ഇന്നലെ ഉച്ചുകഴി ഞ്ഞാണ് വീട്ടിൽ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത്

കനറ ബാങ്കിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ ബാങ്ക് അധികൃതർ സമ്മർദ്ദം ചെലുത്തിയിരുന്നതായി ലേഖയുടെ ഭർത്താവ് ചന്ദ്രൻ കുറ്റപ്പെടുത്തി

തിരിച്ചട യ്ക്കാൻ ബാക്കിയുണ്ടായിരുന്ന ആറ് ലക്ഷത്തിലധികം രൂപ ഈടാക്കുന്നതിനാണ് ബാങ്ക് ഭീഷണിപ്പെടുത്തിയ തെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വായ്പാതിരിച്ചടവിന് ചന്ദ്രന്റെ കുടും ബത്തെ ഭീഷണിപ്പെടുത്തുകയോ സമ്മർദ്ദം ചെലുത്തു കയോ ചെയ്തിട്ടില്ലെന്ന് കനറബാങ്ക് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

സ്കൂളിൽ ഇന്നലെ തെളിവെടുപ്പ് നടത്തിയ ഹയർ സെക്കണ്ടറി ജോയന്റ് ഡയറക്ടറും ഹയർ സെക്കണ്ടറി മേഖലാ ഡെപ്യൂട്ടി ഡ്യറക്ടറും ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് ഈ തീരുമാനമെടു ത്തത് സംഘം വിദ്യാർത്ഥികളിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞു സംഭവം സംബന്ധിച്ച് കേസെടുത്ത പൊലീസ് തുടർ നടപടികളുടെ ഭാഗമായി സ്കൂളിലെത്തി അന്വേഷണം ആരംഭിച്ചു

കോയമ്പത്തൂരിൽ ദേശീയ ജൂനിയർ ബാസ്ക്കറ്റ ബോൾ ടൂർണ്ണമെന്റിൽ കേരള വനിതകൾക്ക് ജയം

പുരുഷ വിഭാഗത്തിൽ കേരളം കർണ്ണാടകയോട് പരാജയപ്പെട്ടു

പത്തനംതിട്ട അടൂരിൽ കേരള സ്റ്റേറ്റ് സർവ്വീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേ ളനത്തോടനുബന്ധിച്ച് നടന്ന ട്രേഡ് യൂണിയൻ സമ്മേ ളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

കൊച്ചി പാലാരിവട്ടം മേൽപ്പാലത്തിന്റെ നിർമ്മാണ പാളിച്ചുകൾ സംബന്ധിച്ച് അമ്പേഷണം നടത്തുന്ന വിജി ലൻസ് ബ്രസ്പ്പെട്ട ഉദ്യോഗ സ്ഥാിൽ നിന്ന് തെളിവെടുപ്പ് നടത്തി പ്രധാനമായും റോഡ്സ് ആന്റ് ബ്രിഡ്ജസ് ഡെവലപ്പ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥ രിൽ നിന്നാണ് മൊഴിയെടുത്തത്

ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഞായറാഴ്ച നടയ ടയ്ക്കും

നിയമം നടപ്പി ലാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാനും യോഗം തീരുമാനിച്ചു ലലലലല മലപ്പുറം ജില്ലയിലെ നന്നമുക്ക് പഞ്ചായത്ത് പ്രസി ഡണ്ട് സ്ഥാനത്തേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കും പഞ്ചായത്തിലെ വനിതാ കോൺഗ്രസ് അംഗവുമായി നടത്തിയ ടെലഫോൺ സംഭാഷണം പുറത്തുവന്നതിനെ തുടർന്ന് സി പി ഐ എമ്മിലെ ടി സത്യൻ പ്രസിഡ ണ്ട് സ്ഥാനം രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് കാട്ടാനശലൃം നിലനിൽക്കുന്ന പാലക്കാട് ആറങ്ങോട്ട് കുളമ്പിലെ അടിക്കാടുകൾ ഇന്ന് വെട്ടി തുടങ്ങും പ്രദേശത്ത് ഇറങ്ങിയ ആനകളിൽ ഒന്നിന് മദപ്പാട് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആനകളെ ദൂരെ നിന്ന് കാണാൻ കഴിയുന്ന വിധം വഴിയോരങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാനാണ് വനം വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് നിരീക്ഷിക്കാൻ വനം വകുപ്പ് പ്രതേക സംഘം പട്രോളിംങ് നടത്തും മദപ്പാടുള്ള ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാൻ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് വയനാട് പനമരം നീർവാരത്ത് ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനയെ തിരികെ കാട്ടിലേക്ക് തുരത്തുന്ന്തിനിടെ വനംവകുപ്പ് ജീവനക്കാരന് പടക്കം പൊട്ടി പരിക്കേറ്റു മാനന്തവാടി റെയിഞ്ചിലെ വാച്ചൂർ മനാഫിന്റെ കൈവിരലുകൾക്കാണ് പരിക്കേറ്റത്

സമീപത്തെ വനത്തിൽ നിന്നും ഇറങ്ങിയ കാട്ടാന കൃഷിയടത്തിനും ചുറ്റും സ്ഥാപിച്ച വൈദ്യുത കമ്പിവേലിയും തകർത്താണ് കൃഷിയിടത്തിൽ പ്രവേശിച്ചത് പാലക്കാട് നെന്മാറ അയിനംപാടത്ത് ലോറിയും മോട്ടോർ സൈക്കിളും കൂട്ടിയിടിച്ചു ഒരാൾ മരിച്ചു നെന്മാറ കവറക്കുളമ്പ് വാസൻ

ഇന്നലെ രാത്രി എട്ടുമണിയോടെ ആയിരുന്നു അപകടം ബേപ്പൂരിൽ കടലിൽ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കെ ബോട്ടുകൾ അപകടത്തിൽപെട്ട് രണ്ട് മത്സ്യ ത്തൊഴി ലാ ളി കൾക്ക് പരിക്കേറ്റു പയ്യാനക്കൽ സ്വദേശി കെ

അബ്ദുൽ മനാഫ് തോപ്പയിൽ സ്ദേശി ടി

എതിർദിശകളിലായി മത്സ്യബന്ധനം നടത്തുന്നതിനിടെ കടലിന്റെ അടിത്തട്ടിൽ വെച്ച് രണ്ട് ബോട്ടുകളുടെയും വലകൾ തമ്മിൽ കൊളുത്തിയതാണ് അപകട കാരണമെന്നാണ് സുചന

മാടായിപ്പാറയുടെ അപൂർവ്വ ജൈവവൈവിധൃ ങ്ങൾ കത്തിനശിച്ചു

യു തൊഴിലാളികൾ ചിന്നക്കനാൽ വില്ലേജ് ഓഫീസിനു മുന്നിൽ റിലേ ധർണ്ണ ആരംഭിച്ചു

എം ജില്ലാ സെക്രട്ടറി കെ കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

ജൂൺ ഒന്നിനാണ് കാലവർഷത്തിന് സംസ്ഥാനത്ത് തുടക്കം കുറിക്കുന്നത്